ടി ജീവനക്കാർക്കായി വർക്ക് നിയർ ഹോം യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ബൽറാം ഭാർഗ്ഗവ അറിയിച്ചു രോഗബാധയും മരണനിരക്കും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ തോതിലാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഉയർന്ന ജനസംഖ്യയാണ് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം മറ്റ് രാജ്യങ്ങളിലെ രോഗബാധിതരുടെ എണ്ണവും ജനസംഖ്യയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലേത് കുറഞ്ഞ നിരക്ക് മാത്രമാണെന്നും ബൽറാം ഭാർഗ്ഗവ പറഞ്ഞു

രുര സംസ്ഥാനങ്ങൾക്കാവശ്യമായ കോവിഡ് കെയർ സെന്ററുകൾ ലഭ്യമാക്കാൻ സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

ലഘുവായ രോഗബാധ റിപ്പോർട്ട് ചെയ്തവർക്കായിരിക്കും റെയിൽവേ കോച്ചുകൾ ഉപയോഗപ്പെടുത്തുക രുമ നെറ്റ് കണക്ഷൻ കമ്പ്യൂട്ടർ എന്നിവ ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഐ

കമ്പനികളെ തകർച്ചയിൽനിന്ന് രക്ഷിക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയും ഉത്തരവാദിത്വമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കൊല്ലം ജില്ലയിൽ എട്ട് കണ്ണൂരിൽ ഏഴ് പത്തനംതിട്ടയിൽ അഞ്ച് എറണാകുളം കോട്ടയം ജില്ലകളിൽ രണ്ടുവീതം കോഴിക്കോട്ട് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കോവിഡ് സ്ഥിരീകരണം

പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി ലക്കിടി പേരൂർ എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ

ഹോട്ട്സ്പോട്ടുകളാണ് ശേഷിക്കുന്നത്

ഇതിൽ ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഭരിത പ്രതാപ്

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഹർദീപ് സിംഗ് പുരി ട്വീറ്റ് ചെയ്തു രുര ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസികളുമായി ആറ് വിമാനങ്ങൾ ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും

വൈകിട്ട് മസ്ക്കറ്റിൽ നിന്ന് ഗോ എയർ വിമാനവും കണ്ണൂരിലിറങ്ങി

രുര വർദ്ധിപ്പിച്ച ബസ് ചാർജ്ജ് വെട്ടിക്കുറച്ച നടപടി സ്റ്റേ ചെയ്തതിനെതിരെ ഗവൺമെന്റ് നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബഞ്ച് ഇന്ന് പരിഗണിക്കും സിംഗിൾ ബെഞ്ചാണ് നേരത്തെ സ്വകാര്യ ബസ്സുടമകളുടെ ഹർജിയിൽ ഗവൺമെന്റ് ഉത്തരവ് സ്റ്റേ ചെയ്തത് രേര കോവിഡ് സാഹചര്യം മുൻനിർത്തി ശബരിമലയിൽ ഇത്തവണത്തെ ഉത്സവം വേണ്ടെന്നു വെച്ചു മിഥുനമാസ പൂജയ്ക്ക് തീർത്ഥാടകരെ അനുവദിക്കില്ലെന്നും തിരുവനന്തപുരത്ത് തന്ത്രിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിന് ശേഷം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു ആചാരപരമായ ചടങ്ങുകൾ മാത്രം നടത്താനാണ് തീരുമാനം

ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേരുന്ന യോഗം കോവിഡ് ലോക്ഡൌണിനെത്തുടർന്നുണ്ടായ റവന്യൂ നഷ്ടവും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരവും ചർച്ച ചെയ്യും

പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്തൻ കാലിലെ അണുബാധയെത്തുടർന്ന് ജാമ്യം നേടി ചികിത്സയിൽ കഴിയുകയായിരുന്നു സംസ്കാരം ഉച്ചയ്ക്ക് പാനൂരിലെ വീട്ടുവളപ്പിൽ നടത്തും കുഞ്ഞനന്തന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം നേതാക്കൾ അനുശോചിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ എ

ജി സെന്ററിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റിന് ശേഷമായിരിക്കും ഓൺലൈനായി സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് പൊളിറ്റ് ബ്യൂറോ തീരുമാനങ്ങളുടെ റിപ്പോർട്ടിംഗായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട

ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു രുര ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നിന് മന്ത്രി വി എസ് സുനിൽകുമാർ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും മൂന്നുമുതൽ നാലുവരെയാണ് പരിപാടി

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രണ്ടാഴ്ച തിരുവനന്തപുരത്ത് ക്വാറന്റൈനിലായിരുന്ന അവർ ഇന്നലെ വൈകീട്ടാണ് ചുമതലയേറ്റത് രുമ മുസ്ലിംലീഗ് നേതാവും തിരൂർ മംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായി സി എം റസാഖ് ഹാജി നിര്യാതനായി

കബറടക്കം രാവിലെ മംഗലം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ